എസ് എൽ

വാർത്തകൾ വിശദമായി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താൻ കേന്ദ്ര മന്ത്രിസഭയെടുത്ത സുപ്രധാന തീരുമാനങ്ങൾ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു കർഷകരെ പ്രോത്സാഹിപ്പിക്കാനും ഗ്രാമങ്ങളുടെയും കച്ചവടങ്ങളുടെയും വികസനം ഉറപ്പാക്കാനും നടപടികൾ വഴിയൊരുക്കും

മൃഗ സംരക്ഷണ അടിസ്ഥാന വികസന നിധി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ക്ഷീര വിപണന മേഖലയിലെ നിക്ഷേപം വർദ്ധിപ്പിക്കാനും വഴിയൊരുക്കും ചെറുകിട ഇടത്തര വ്യവസായ ങ്ങൾക്ക് നൽകുന്ന പലിശ സഹായവും ശിശു ലോൺ അക്കൌണ്ടുകളും മുദ്ര യോജനയും മേഖലയുടെ സ്ഥിരതയ്ക്ക് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു രുമ കോവിഡ് ആഗോളതലത്തിൽ ബാന ആദ്യം കണക്കാക്കിയതിനേക്കാൾ വലിയ സാമ്പത്തിക മാന്ദ്യത്തിന് വഴിയൊരുക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയുടെ മുഖ്യ ശാസ്ത്രജ്ഞ ഗീതാ ഗോപിനാഥ് അറിയിച്ചു

നേരത്തെ മൂന്നു ശതമാനം സാമ്പത്തിക മാന്ദ്യമായിരുന്നു കണക്കാക്കിയിരുന്നത്

എഫ് വിലയിരുത്തി രുമ അടുത്ത ആഴ്ചയോടെ ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം ഒരു കോടിയായി ഉയരുമെന്ന് കണക്കാക്കുന്നതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു

വിശദാംശങ്ങളുമായി അനുഷ ആത്മപ്രകാശ്

എറണാകുളത്ത് എട്ടുപേർക്കും കോട്ടയത്ത് ഏഴുപേർക്കും ഇടുക്കി കാസർകോട് ജില്ലകളിൽ ആറുപേർക്ക് വീതവും തിരുവനന്തപുരത്ത് നാലുപേർക്കും കോഴിക്കോട്ട് മൂന്നുപേർക്കും വയനാട്ടിൽ രണ്ടുപേർക്കും രോഗം സ്ഥിരീകരിച്ചു

എട്ടുപേർ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരാണ്

ന്യൂസ് ഡസ്ക് ആകാശവാണി ദേദ സംസ്ഥാനത്ത് മടങ്ങിയെത്തുന്ന അതിഥി തൊഴിലാളികളെ കോൺട്രാക്ടർമാരുടെ ഉത്തരവാദിത്വത്തിൽ ക്വാറന്റൈനിലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു യാത്രാപാസ് ഇല്ലാതെയും ഏറ്റെടുക്കാൻ കോൺട്രാക്ടർ ഇല്ലാതെയും എത്തുന്ന തൊഴിലാളികളെ നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് അയയ്ക്കും ഇവർക്ക് എത്തേണ്ട ജില്ലയിലായിരിക്കും ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഇങ്ങനെയെത്തുന്ന തൊഴിലാളികളെ ട്രെയിനിൽ മടക്കി അയയ്ക്കുന്ന സാഹചര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അത്തരക്കാർക്ക് തൊഴിൽ നൽകാൻ ജില്ലാ തലത്തിൽ സൌകര്യങ്ങളൊരുക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു രുമ പ്രതിരോധ കുത്തിവെയ്പ് നൽകുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് പരിശോധന നടത്തി രോഗമില്ലെന്ന് ഉറപ്പാക്കാൻ നടപടിയെടുക്കണമെന്ന് മന്ത്രി വി

എറണാകുളം ചൊവ്വരയിൽ കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവെയ്പ് നൽകിയ ആരോഗ്യ പ്രവർത്തകയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ ശക്തമാക്കണമെന്ന് കൊച്ചിയിൽ ചേർന്ന അവലോന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു രുമ ലോറി ഡ്രൈവർക്ക് കോവിഡ് മത്സ്യ സ്ഥിരീകരിച്ചതിനെത്തുടർന്ന് താനൂർ ഹാർബറിലെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെയ്ക്കാൻ മലപ്പുറം ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി ലോറി ഡ്രൈവർ എത്തിയ കോഴിക്കോട്ടെ പുതിയാപ്പ ഹാർബർ ഇന്നലെ അടച്ചിരുന്നു രേര പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇന്ന് കോവിഡ് കിടത്തി ചികിത്സ ആരംഭിക്കും നൂറുപേരെ ചികിത്സിക്കാൻ സജ്ജീകരണം പൂർത്തിയായിട്ടുണ്ട് രോഗലക്ഷണം കുറഞ്ഞവരും ഗുരുതരാവസ്ഥ ഇല്ലാത്തവരുമായ രോഗികൾക്കായിരിക്കും ഫസ്റ്റ്ലൈൻ ട്രീറ്റ്മെന്റ് കേന്ദ്രം എന്ന നിലയിൽ ചികിത്സ നൽകുന്നത്

അലിൻഡ് സ്വിച്ച് ഗിയർ എംപ്ലോയീസ് അസോസിയേഷൻ മാന്നാറിൽ സംഘടിപ്പിച്ച തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ജില്ലയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് കെ രാജന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു

സൌദി എയർലൈൻസ് വിമാനവും ഇന്നലെ ആദ്യമായി കണ്ണൂർ വിമാനത്താവളത്തിലിറങ്ങി

രുമ ഭീമമായ നഷ്ടം സഹിച്ചും കേരളത്തിന്റെ പരമ്പരാഗത തൊഴിൽ വ്യവസായങ്ങൾ സംരക്ഷിക്കാനാണ് ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി ഡോ

കായംകുളത്ത് നവീകരിച്ച കശുവണ്ടി ഫാക്ടറി സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തോമസ് ഐസക് രുര രാജ്യത്ത് ഇന്ധനവില ഇന്നും വർദ്ധിച്ചു

കോവിഡ് വ്യാപനംമൂലം നികുതി ദായകർക്കുണ്ടായ അസൌകര്യങ്ങൾ പരിഗണിച്ചാണ് തീയതി നീട്ടിയത്

രുദ കൊല്ലം കരുനാഗപ്പള്ളിയിലെ അമൃതാനന്ദമയി മഠത്തിൽ വിദേശവനിത കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചു

ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം വയനാട് വിംസ് മെഡിക്കൽ കോളേജിൽ എലിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു

എലിപ്പനി ലക്ഷണങ്ങളോടെ മൂന്നുപേർ കൂടി ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് രുമ മലപ്പുറം ചുങ്കത്തറയിൽ പ്രളയബാധിതർക്ക് ഫെഡറൽ ബാങ്ക് നിർമിച്ച വീടുകൾ മൂന്നാഴ്ചയ്ക്കകം കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു വീടുകളുടെ നിർമാണം പൂർത്തിയായിട്ടും കൈമാറുന്നില്ലെന്ന് കാണിച്ച് ചാലിക്കൽ കോളനി നിവാസി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്